ഇൻഷറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പിഎം ജയ് സെഹത് പദ്ധതിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

ജനങ്ങളുമായി ആശയങ്ങൾ പ്പ്കുവയ്ക്കും

പദ്ധതികൾക്ക് ക്ട്രേന്ദ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കമിട്ടു

സർവീസിന് മറ്റന്നാൾ തുടക്കം

എൽ

സി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം

ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ആയുഷ്മാൻ ഭാരത് പി എം ജയ് സെഹത് പദ്ധതിയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ലക്ഷ്യം ജമ്മു കശ്മീർ കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തണുപ്പിനെയും കോവിഡിനെയും അവഗണിച്ച് ധീരമായി വോട്ടുചെയ്ത കശ്മീരി ജനത ജനാധിപത്യിട്ടെത്ത ശക്തിപ്പെടുത്തിയതായും അദ്ദേഹം എട്ടിക്കാട്ടി കേന്ദ്രഭരണപ്രദേശമായ ജമ്മുകശ്മീരിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ്ടെന്നുകൃആയുഷ്മാൻ ഭാരത് പിഎം ജയ് സെഹത് പദ്ധത്യിക്ക് ്വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാന്മന്ത്രി പറഞ്ഞു എല്ലാ ജമ്മുകശ്മീർ നിവാസികൾക്കും സാർപ്പത്രികമായ ആരോഗ്യ പരിരക്ഷയും ചെലവുകുറഞ്ഞതും ഗുണ്നിലവാരമുള്ളതുമായ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ളതാണ് പദ്ധതി അഞ്ചുലക്ഷം രൂപവരെയുള്ള സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും ഉറപ്പു നൽകും ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് നിലവിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെവിടെയുമുള്ള ആശുപത്രികളിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആരോഗ്യ മന്ത്രി ഹർഷ് വർദ്ധൻ ജമ്മു കശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം

അസ്ട്രമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ രണ്ടാമത്ത്ത് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനവും കേന്ദ്രി ആ്ട്യന്തരമന്ത്രി നിർവഹിച്ചു അസം ദർശൻ പദ്ധതിക്ക് ്കീഴിലുള്ള ധനസഹായം വിതരണം ചെയ്ത അദ്ദേഹം ഒൻപ്ത് ലോ കോളേജുകളുടെ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തു

ദ്വിദിന സന്ദർശനത്തിനായി അസമിൽ എത്തിയ ആഭ്യന്തരമന്ത്രി ബിജെപി നേതാക്കളുമായും ചർച്ച നടത്തും

ഉൽപ്പാദന ചെലവിന്റെ ഒന്നര മടങ്ങ് താങ്ങുവിലയായി നൽകണമെന്ന സ്വാമിനാഥൻ സമിതിയുടെ ശിപാർശ മോദി സർക്കാർ നടപ്പാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

പൂർണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ മാനുഷ്ഠിക്മായ തെറ്റുകൾ ഒഴിവാക്കാൻ ഡ്രൈവർ രഹിത് ്ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്ട്രാക്കുന്നത്

ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ആഗോള സമ്പദ്ഘടനയാക്കി മാറ്റി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സപ്നം സാക്ഷാത്ക്കരിക്കുന്നതി നെക്കുറിച്ചും കേന്ദ്രമന്ത്രി ആകാശവാണി വാർത്തകൾക്കു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു

കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

കെയിൽ കണ്ടെത്തിയ ജനിതക വൃത്തിിയാനം സംഭവിച്ച കോവിഡ് വൈറസിനെ നേരിടുന്നത്ത്മായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദേശീയ കർമ്മൂസ്മിത്രീ പ്രത്യേക യോഗം ചേർന്നു നിതി അയോഗ് അംഗർക്രൊഫസർ വിനോദ് പോൾ ഐ സി എം

കെയിൽ നിന്നുള്ള വൈറസിന് പ്പ്ട്ട്പന സാധ്യത കൂടുതലായതിനാൽ ഈ വൈറസ് ബാധിച്ചവരെ കണ്ടെത്തുകയും ഈ വൈറസ് രാജ്യത്ത് പടരുന്നത് തടയുകയും വേണം എന്ന് യോഗം നിരീക്ഷിച്ചു ഈ കാലയളവിൽ യുകെയിൽ നിന്ന് എത്തിയവരെ നിരീക്ഷിക്കുന്നതിനായി വിമാനത്താവളങ്ങളിലും മറ്റു സാധൃതാ മേഖലകളിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ യോഗത്തിൽ അറിയിച്ചു ഇതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക മാർഗ്ഗരേഖ തയ്യാറാക്കിയതായും എൻ

ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് പാർട്ടി യോഗം ചേരുന്നത്

ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

ഗോവയിലാണ് മത്സരം പുരോഗമിക്കുന്നത് ആറ് കളികളിൽ രണ്ട് ജയവും രണ്ട് തോൽവിയും രണ്ട് സമനിലയും വഴങ്ങിയ ചെന്നൈയിൻ എഫ്

അതേസമയം ഒരു മത്സരത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാനമാണുള്ളത്

ശാസ്ത്രോത്സവത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികൾ വെള്ളിമെഡൽ കരസ്ഥമാക്കി

മുഖ്യമന്ത്രി എൻ നാരായണസ്വാമി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാജ്ഞലി അർപ്പിച്ചു